പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യയും ന്യൂസിലന്റുമായുള്ള പോരാട്ടം ഇന്ന് നോട്ടിംഗ്ഹാമിൽ

ഫാങ്ഹായ് സഹകരണ സംഘടനയിലെ അംഗരാജ്യങ്ങളിൽ നേതാക്കളുടെ യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും രണ്ടു ദിവസത്തെ യോഗത്തിന് ഇന്ന് തുടക്കമാകും മേഖലയിൽ സമാധാനം സുരക്ഷ സ്ഥിരത എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സംയുക്ത പരിശ്രമങ്ങൾക്ക് സമ്മേളനത്തിൽ ഊന്നൽ നൽകും

ഇന്ത്യയെ കൂടാതെ കസാക്കിസ്ഥാൻ ചൈന കിർഗിസ്ഥാൻ പാകിസ്ഥാൻ റഷ്യ തജികിസ്ഥാൻ ഉസ്ബെകിസ്ഥാൻ എന്നിങ്ങനെ എട്ട് രാജ്യങ്ങളാണ് ഫാങ്ഹായ് സഹകരണ സംഘടനയിലുള്ളത്

മുത്തലാഖ് അസാധുവും നിയമവിരുദ്ധവുമാക്കാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു

രാജ്യത്തിന്റെ അന്താരാഷ്ട്ര അതിർത്തികളിൽ കഴിയുന്ന പൌരന്മാർക്ക് ജോലി സംബന്ധമായ തെരഞ്ഞെടുപ്പുകളിലും പ്രൊഫഷണൽ കോഴ്സുകളിലും സംവരണം ലഭിക്കുന്നത് ബിൽ ഉറപ്പു വരുത്തും

അധ്യാപക തസ്തികയിൽ നിലനിൽക്കുന്ന ഏഴായിരത്തിലധികം ഒഴിവുകൾ നേരിട്ടുള്ള നിയമനം വഴി നികത്താൻ ബിൽ സഹായകരമാകും

ബില്ലിൽ ഭേദഗതി വരുന്നതോടെ ദന്തൽ കൌൺസിൽ പുനഃസംഘടിപ്പിക്കപ്പെടുകയും കേന്ദ്ര ഗവണ്മെന്റ് പ്രതിനിധികൾക്കും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കും കൌൺസിൽ പ്രാതിനിധ്യം ഉണ്ടാവുകയും ചെയ്യും ജമ്മുകശ്മീരിൽ രാഷ്ട്രപതി ഭരണം ആറ് മാസത്തേക്ക് കൂടി നീട്ടുന്നതിന് കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു

പുതിയ ബില്ലിലൂടെ ആധ്ാർ ദുരപയോഗം തടയാനാണ് പ്രധാനമായും ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് ഇതുകൂടാതെ പൊതുസ്ഥലങ്ങളിലെ അന്ധികൃത കൈയേറ്റം തടയുന്ന നിയമം കർക്കശമാക്കാൻ പ്രസ്തുത്യ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ലിനും അംഗീകാരമായി പ്രസ്ത്രുത ബില്ലുകൾ വരുന്ന ബജറ്റ് സമ്മേളനത്തിൽ പാർലമെന്റിന്റെ പരിഗണനയ്ക്കെത്തും ന്യൂസ് ഡെസ്ക് ആകാശ്രവാണി

ആർബിട്രേഷൻ രംഗത്ത് സ്വതന്ത്ര്യവും സ്വാശ്രയാധിഷ്ഠിതവുമായ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ബിൽ വിഭാവനം ചെയ്യുന്നു സെൻർ പ്രാവർത്തികമാക്കുന്നതോടെ അന്താരാഷ്ട്ര സമൂഹങ്ങൾക്കുൾപ്പെടെ തർക്ക പരിഹാരത്തിന് പുതിയ ഒരു വേദി തുറന്നു കിട്ടും ഗവൺമെന്റിനും ഗവൺമെന്റ് ഏജൻസികൾക്കും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായി ഉണ്ടാകുന്ന തർക്കങ്ങൾ കുറഞ്ഞ ചിലവിൽ പരിഹരിക്കാനും സെന്റർ സഹായിക്കും ഇതോടെ സ്ഥാപനാധിഷ്ഠിത തർക്ക പരിഹാരങ്ങൾക്കുള്ള അന്താരാഷ്ട്ര വേദിയായി ഇന്ത്യ മാറും

ഉയർന്ന പ്രദേശങ്ങളിലെ ജീവശാസ്ത്രത്തെയും ചികിത്സയേയും സംബന്ധിച്ച് ഇന്ത്യയും കിർഗിസ്ഥാനും സഹകരിച്ച് ഗവേഷണം നടത്തുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു ഉയർന്ന പ്രദേശങ്ങളിൽ സൈനിക വൃത്തിയിലേർപ്പെട്ടിരിക്കുന്നവരുടെ ഭൌതികവും മാനസികവുമായ നില മെച്ചപ്പെടുത്തുന്നതിനായാണ് നടപടി യോഗ പ്രകൃതിദത്ത ചികിത്സാരീതി എന്നിവയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകും ലീഗൽ മെട്രോളജി സംബന്ധിച്ചും കരാരിലേർപ്പെടാനും ഇരു രാജ്യങ്ങളും ധാരണയായി ജോതിശാസ്ത്രം അന്തരീക്ഷ ശാസ്ത്രം ആസ്ട്രോഫിസിക്സ് എന്നീ മേഖലയിൽ തായ്ലാന്റുമായും സൈബ്രർ സ്വ്ര്ക്ഷയിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഫിൻലാന്റുമായി സഹികരിച്ചു പ്രവർത്തിക്കുന്നതിനും ഇന്ത്യ ധാരണയിലെത്തും

അതേസമയം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ യോഗം നാളെ വിളിച്ചിട്ടുണ്ട് അമിത്ഷായും മറ്റ് ബിജെപി ദേശീയ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും

ഗുജറാത്തിലെ ജനങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വായു ചുഴലിക്കാറ്റിന്റെ സാന്നിധ്യത്തെ തുടർന്ന് കേരളത്തിലും കനത്ത മഴ തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഗോപകുമാർ

ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി പ്രീതി സുധൻ അദ്ദേഹത്തെ അനുഗമിക്കും രോഗിബാധിതരായ കുട്ടികൾ ചികിത്സയിലുള്ള ശ്രീകൃഷ്ണ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കേജ്രിവാൾ ഹോസ്പിറ്റൽ എന്നിവിടങ്ങൾ കേന്ദ്രമന്ത്രി സന്ദർശിക്കും

ഹെലികോപ്റ്ററുകളിൽ മെഡിക്കൽ സേവനങ്ങളും ലഭ്യമാക്കും

ന്യൂഡൽഹിയൽ ശ്രീ എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ ചേർന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ അനൌദ്യോഗിക യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സംസ്ഥാന വെള്ളപ്പൊക്ക നിയന്ത്രണ പദ്ധതി പുനഃപരിശോധിക്കണമെന്ന് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു വെള്ളപ്പൊക്കവും മണ്ണൊലിപ്പും തടയുന്നതിന് കേന്ദ്ര സഹായം ലഭ്യമാക്കുന്ന സുപ്രധാന പദ്ധതിയാണിതെന്ന് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു ശേഷം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി

ഇന്ന് ഇന്ത്യ ന്യൂസിലന്റുമായി ഏറ്റുമുട്ടും നോട്ടിംഗ്ഹാമിൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് മത്സരം ആദ്യ രണ്ടു മത്സരങ്ങളിൽ ദക്ഷിണഫ്രിക്കയേയും ഓസ്ട്രേലിയയേയും പരാജയപ്പെടുത്തി ഇന്ത്യ മികച്ച ജയം നേടിയിരുന്നു

റംസാനോട് അനുബന്ധിച്ചാണ് മാപ്പ് അനുവദിച്ചത്